പോരാട്ട വീര്യത്തിന്റെ സ്മരണ ഉയർത്തി കാർഗിൽ വയസ്സ്

കൊറോണയ്ക്ക്തിരായ പോരാട്ടം വിജയിച്ചേ തീരുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധത്തെ മറ്റൊരു യുദ്ധമായി കാണണമെന്നും മൻ കി ബാത് സന്ദേശം

കേരളത്തിൽ മൂന്നു കോവിഡ് മരണം കൂടിയെന്ന് റിപ്പോർട്ട്

അകാരണമായ ശത്രുത പാകിസ്ഥാന്റെ ശീലമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാതിൽ പറഞ്ഞു എല്ലാവരുമായി ഒരു കാര്യവുമില്ലാതെ ശത്രുത ഉണ്ടാക്കുകയാണ് ദുഷ്ടന്മാരുടെ സ്വഭാവം പാകിസ്ഥാനുമായി നല്ല ബന്ധമുണ്ടാക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ആ രാജ്യത്തു നടന്ന ആഭ്യന്തര കലഹങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ഭാരതത്തിന്റെ മണ്ണ് പിടിച്ചെട്ടുക്കാനും ശ്രമമുണ്ടായത്

സൈനൃത്തിന്റെ ഉയർന്നു ഉത്സാഹവും വീരൃവുമാണ് കാർഗിലിൽ വിജയിച്ചര്യ്ക്സ് പ്രധാനമന്ത്രി അനുസ്മരിച്ചു

ജവാന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജ്യം വിജയ് ദിവസ് ആഘോഷിക്കുന്നു ഒരു റിപ്പോർട്ട്

നിയന്ത്രണ മേഖല മറികടന്ന് കിലോമീറ്ററോളം പ്രദേശം കൈവശപ്പെടുത്തിയ പാക് നീക്കത്തിനെതിരെ ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിക്ക് ഇന്ത്യ തുടക്കം കുറിച്ചു

പതിനെട്ടാം ഗ്രനേഡിയ്ക്ക്സിലെ ലഫ്റ്റനന്റ് കേണൽ ആർ

ജെറി പ്രേംരാജ് നാലാം ഫീൽഡ് റെജിമെന്റിലെ സജീവ് ഗോപാലപിള്ള പതിനെട്ടാം ഗഡ്വാൾ റൈഫിൽസിലെ ക്യാപ്റ്റൻ എം

സൂരജ് എന്നിവർക്ക് മരണാനന്തര ബഹുമതിയായി വീരചക്രം ലഭിച്ചു ക്യാപ്റ്റൻ പി

ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് സഹമന്ത്രി ശ്രീപദ്നായിക് കരസേനാമേധാവി ജനറൽ എം

ഇന്ത്യയിൽ കൊറോണ ബാധിച്ചുണ്ടാകുന്ന മരണ നിരക്ക് വളരെ കുറവാണെന്നും അദ്ദേഹം പറഞ്ഞു

പലയിടങ്ങളിലേക്കും രോഗം വ്യാപിക്കുകയാണ് അതിനാൽ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്

കേരളത്തിൽ എറണാകുളത്തെ വിനായകുമായാണ് ശ്രീ നരേന്ദ്രമോദി സംസാരിച്ചത്

യുവാ ക്കളോടും എല്ലാ ജനങ്ങളോടും സ്വാതന്ത്രൃദിനത്തിന്റെ അന്ന് മഹാമാ രിയിൽ നിന്ന് സ്വാതന്ത്യമെന്ന ദൃഢനിശ്ചയമെടുക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു